എം കേരളത്തിന്റെ റെയിൽവേ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ എം പി മാരുടെ യോഗം തിരുവന്തപുരത്ത് തുടങ്ങി

പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ കൂടുതൽ അറ സ്റ്റുണ്ടാകുമെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു കിഫ്ബി ഓഡിറ്റിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ പുരോ ഗതിയെ തടയാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ബീച്ച് ഗെയിംസിന് കോഴിക്കോട്ട് ഒരുക്കങ്ങൾ തുടങ്ങി കേരളത്തിന്റെ റയിൽവേ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ദക്ഷിണ റയിൽവേ മാനേജറുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ എം പി മാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി

മലബാറിന്റെ റെയിൽവേ ആവശ്യങ്ങൾക്കൊപ്പം വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിക്കുമെന്ന് എം കെ രാഘവൻ എം പി അറിയിച്ചു മെമുസർവീസുകൾ ആരംഭിക്കൽ പുതിയ ബംഗലുരു സർവ്വീസ് പാലക്കാട് ഡിവിഷനിലേക്ക് പുതിയ എൽ എച്ച് ബി കോച്ചുകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട നിലവാരത്തിലേക്കുയർത്തുന്ന പദ്ധതി വേഗത്തിലാക്കൽ ഫറോക്ക് കരിപ്പൂർ അങ്ങാടിപ്പുറം റെയിൽവേ ലൈൻ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റംഷൊർണ്ണൂരിനെ ട്രയാങ്കുലാർ സ്റ്റേഷനാക്കി ഉയർത്തൽ മംഗലാപുരം ഷോർണ്ണൂർ മൂന്നാം റെയിൽവേ ലൈൻ നിർമ്മാണം റെയിലോരം പാതകളുടെ അനുമതി നിലമ്പൂർ നഞ്ചങ്കോട് പാത എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും പ്രളയക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്രസംഘം വയ നാട് ജില്ലയിൽ പര്യടനം തുടങ്ങി ആഭ്യന്തര ജോയന്റ് സെക്രട്ടറി ശ്രീപ്രകാശിന്റെ നേതൃത്വത്തിൽ എത്തിയ നാലംഗ സംഘമാണ് ജില്ല സന്ദർശിക്കുന്നത് രാവിലെ കലക്ടറേറ്റിൽ ജില്ല നേരിട്ട പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ബോധ്യപ്പെടുത്തുന്ന റിപ്പോർട്ട് ജില്ലാഅധികൃതർ സംഘത്തിന് കൈമാറി പുത്തുമല കുറിച്യാർമ ല തുടങ്ങിയ ദുരന്തബാധിത മേഖലകളിൽ സംഘം എത്തും തൃശൂരിലും മഴക്കെടുതി വിലയിരുത്തുന്ന മൂന്നംഗ സംഘ ത്തിന്റെ സന്ദർശനം തുടങ്ങി ജില്ലാ അധികൃതർ നാശനഷ്ടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച റിപ്പോർട്ട് സംഘത്തിന് കൈമാറി കേന്ദ്ര സംഘം നാളെ കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തും പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ കൂടുതൽ അറ സ്റ്റുണ്ടാകുമെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു കുറ്റ ക്കാരെന്ന് കണ്ടെത്തിയ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

ഒ സൂരജ് അടക്കം പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനി ടയിലാണ് വിജിലൻസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത് പൊതു ജനങ്ങൾക്ക് അപായം ഉണ്ടാക്കുന്ന തരത്തിലാണ് മേൽപ്പാല ത്തിന്റെ നിർമ്മാണമെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചതാരാണെന്ന് കോടതി ചോദി ച്ചു

പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിലെ ക്രമക്കേട് സംബ ന്ധിച്ച് ടി

സൂരജ് ഉന്നയിച്ച ആരോപണത്തിന് താൻ മറുപടി പറ യേണ്ട കാര്യമില്ലെന്ന് മുൻ മന്ത്രിയും മുസ്തിംലീഗ് നേതാവുമായ വി

ഇബ്രാഹിംകുഞ്ഞ് തിരുവനന്തപുരത്ത് പറഞ്ഞു

ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറഞ്ഞതിന് മന്ത്രിയാ യിരുന്ന ആളെന്ന നിലയിൽ മറുപടി പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു വസ്തുതകൾ ഫയലിലുണ്ട്

ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ പിന്തുണക്കുന്നുവെന്നും താൻ പ്രതിക്കൂട്ടിലാണോ അല്ലയോ എന്ന കാര്യം കോടതി തീരു മാനിക്കട്ടെയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കിഫ്ബി ഓഡിറ്റിന്റെ പേരിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നവർ സംസ്ഥാ നത്തിന്റെ പുരോഗതിയെ തടയാൻ ശ്രമിക്കുന്നവരാണെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി

നാടിന്റെ മുഖഛായ തന്നെ മാറ്റാൻ സഹായിക്കുന്ന പദ്ധതി തടസ്സപ്പെടുത്താൻ ഉത്തര വാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു

എഫ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കിഫ്ബി പദ്ധതികളുടെ മൂല്യനിർണയം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത് സുതാര്യമായാണെന്ന് കിഫ്ബി സി

കമ്പനിയെ കണ്ടെത്തിയത് കിഫ്ബിയല്ലെന്നും ഗവൺമെന്റിന് പങ്കാളിത്തമുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്പ്മെന്റ് എന്ന സ്ഥാപനമാണെന്നും അദ്ദേഹം വൃക്തമാക്കി

ഒ പറഞ്ഞു കിഫ്ബിയുടെ കാര്യത്തിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ് ആവശ്യ മെന്നും എങ്കിൽ മാത്രമെ സത്യം ജനങ്ങൾക്ക് അറിയാൻ കഴിയൂ വെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ഇക്കാര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടു ത്തി പൊതുവാഹനങ്ങളിൽ ജി

എസ് ഘടിപ്പിക്കുന്നത് സംബ ന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സമിതി രൂപീകരിച്ചു ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറി കെ

ജ്യോതിലാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖ റോഡ് സുരക്ഷാ കമ്മീഷണർ എൻ ശങ്കർറെഡ്ഡി എന്നിവരാണ് സമിതി അംഗങ്ങൾ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം

കെ ശശീന്ദ്രൻ മോട്ടോർവാഹന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെതുടർന്നാണി ത് ആവശ്യത്തിന് ജി

എസ് ഉപകരണങ്ങൾ വിപണിയിൽ ഇല്ലെന്ന സംഘടനകളുടെ പരാതിയും സമിതി പരിശോധിക്കും അടുത്തമാസം ഒന്നുമുതൽ ബസ് ഉൾപ്പെടെ പൊതുവാഹന ങ്ങളിൽ ജി

എസ് നിർബന്ധമാക്കാനാണ് കേന്ദ്രഗവൺമെന്റ് നിർദേശിച്ചത് മരടിലെ ഫ്ളാറ്റകൾ പൊളിക്കുന്നതിന് മുമ്പ് പാരിസ്ഥിതിക ആഘാതപഠനം നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അടി യന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി അറിയി ച്ചും ഫ്ളാറ്റുകൾക്ക് സമീപം താമസിക്കുന്ന അഭിലാഷ് എന്നയാ ളാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ സുപ്രീംകോടതി രജിസ്ട്രിയുടെ ക്രമമനുസരിച്ചേ കേസ് പരിഗണിക്കാനാവൂവെന്ന് ജസ്റ്റിസ് എൻ

ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ മാലിന്യം എന്തുചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ലെന്നും ഏതെങ്കിലും വിദഗ്ദ്ധ ഏജൻസിയെക്കൊണ്ട് പഠനം നടത്തണമെന്നുമായിരുന്നു ഹർജി യിലെ ആവശ്യം സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ ഗവൺമെന്റ് ധന സഹായം കൈപ്പറ്റുന്ന സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഗവൺമെന്റിൽ നിന്ന് നേരിട്ടോ സൌജന്യ നിരക്കിൽ ഭൂമി പോലെ നേരിട്ടല്ലാതെയോ സഹായം പറ്റുന്ന സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൌരന്മാർക്ക് വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണെന്നും കോടതി വിധിച്ചു ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെതാണ് വിധി

ജി ഒ കൾക്കോ മറ്റ് ഏജൻസികൾക്കോ ഗവൺമെന്റ് ധനസഹായം നൽകിയാൽ അവർ ശരിയായ ആവശ്യത്തിനാണോ പണം ചെലവഴിച്ചെതെന്നറിയാൻ പൌരന് അവകാശമുണ്ട്

വി കോളജ് ട്രസ്റ്റ് ഉൾപ്പെട്ട കേസിലാണ് കോടതിയുടെ സുപ്ര ധാന വിധി പൊതുഉടമസ്ഥതയിൽ തങ്ങൾ ഉൾപ്പെടില്ലെന്നും അതി നാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നുമായി രുന്നു കോളജിന്റെ വാദം ഇന്ത്യയെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന രാഷ്ട്രീയ ആയുധമായി കശ്മീരിനെ ഉപയോഗിക്കാനാണ് കേന്ദ്രഗവൺമെന്റ് ശ്രമിക്കുന്ന തെന്ന് രാഹുൽഗാന്ധി എം പി കുറ്റപ്പെടുത്തി ഫാറൂഖ് അബ്ദു ള്ളയെപോലെ ദേശീയ നേതാക്കളെ തടവിലാക്കി കശ്മീരിൽ രാഷ്ട്രീയ ശൂന്യത സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാഹുൽ ടിറ്ററിൽ കുറിച്ചു കശ്മീരിൽ ഭീകരർക്ക് ഇടമൊരുക്കുന്ന നടപടി കളിൽ നിന്ന് കേന്ദ്രം പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെ ട്ടു അയോധ്യ ഭൂമിതർക്ക കേസിലെ കക്ഷികൾക്ക് പ്രശ്നം രമ്യ മായി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മധ്യസ്ഥ ചർച്ചകളുമായി ഇനിയും മുന്നോട്ട് പോകാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു മധ്യസ്ഥ ചർച്ചകൾ തുടരണമെന്ന് കേസിലെ ഏതാനും കക്ഷി കൾ ആവശ്യപ്പെട്ടതായി നേരത്തെ മധ്യസ്ഥ ശ്രമം നടത്തിയ മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ്

ഭൂമിതർക്ക കേസ് ദിവസവും പരിഗണിക്കുന്ന നടപടി തുടരു കേൾക്കു ന്ന തിൽ ക യാ ണെന്നും വാദം ഭര ണ ഘടനാബെഞ്ച് ഏറെ ദൂരം മുന്നോട്ട് പോയതായും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു സംസ്ഥാന കായികവകുപ്പും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബീച്ച് ഗെയിംസിന് കോഴിക്കോട് ജില്ലയിൽ ഒരുക്കങ്ങൾ തുടങ്ങി ഫുട്ബോൾ കബഡി വോളിബോൾ കമ്പവലി എന്നീ നാലിനങ്ങളിലായാണ് ബീച്ച് ഗെയിംസ് നടത്തുന്നത് ജില്ലാതല സംഘാടന സമിതി രൂപീകരണ യോഗം മറ്റന്നാൾ രാവിലെ ഒൻപതിന് മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കും

തായ്ലന്റ് താരമാണ് സൈനയെ മൂന്ന് സെറ്റുകൾക്ക് തോൽപ്പിച്ചത് താരത്തി നെതിരെ സൈനയുടെ തുടർച്ചയായ രണ്ടാം തോൽവിയാണിത് ഒമ്പതാമത് സംസ്ഥാന മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച കണ്ണൂർ ധർമ്മശാല കെ എ

നിയമ നിർമ്മാ ണസഭയെപ്പോലെ തന്നെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരി ക്കാനാവുന്ന അധികാര സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്തുക ളെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കാവിലുംപാറ ഗ്രാമപ ഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ കണ്ണൂർ പാപ്പിനിശ്ശേരി തുരുത്തിയിലെ അറവുശാലാ മാലിന്യ പ്താന്റിന്റെ പ്രവർത്തനം ജനകീയ സമിതിയുടെ നിരീക്ഷണത്തിലാക്കാൻ കലക്ടർ ടി വി സൂഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ജനപ്രതിനിധികൾ സാങ്കേതിക വിദഗ്ധർ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയുടെ നിരീക്ഷണത്തിലായിരിക്കും പ്ലാന്റിന്റെ പ്രവർത്തനം

ഇന്നലെയും ഇന്ധനവില വർധിച്ചിരുന്നു യൂണിവേഴ്സിറ്റി കോളജിലെ കത്തികുത്ത് കേസിലെ മൂന്നാംപ്രതി അമർ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ കീഴടങ്ങി ഹൈക്കോടതി നിർദേശത്തെ തുടർന്നായിരുന്നു കീഴട ങ്ങൽ തലശ്ശേരിക്കടുത്ത് ധർമ്മടത്ത് ദിശതെറ്റി എത്തിയ കപ്പൽ നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു

കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ മലപ്പുറം സ്വദേശിയായ യുവാവിനെ കണ്ടെത്താനായി ദേശീയ തെരച്ചിൽ പുനരാരംഭിച്ചു